എം അലോക് കുമാർ വർമ്മയുടെ ഹർജിയിൽ സി ബി ഐ യ്ക്കകത്തെ പ്രശ്നങ്ങൾ സംബന്ധിച്ച അന്വേഷണം കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ കോടതി മേൽനോട്ടത്തിൽ രണ്ടാഴ്ച യ്ക്കകം പൂർത്തിയാക്കൻ സുപ്രീംകോടതി ഉത്തരവ് വ്യാജവാർത്തകളും സന്ദേശങ്ങളും തടയാൻ കർശന നടപ ടിയെടുക്കണമെന്ന് സാമൂഹിക മാധ്യമങ്ങൾക്ക് കേന്ദ്ര നിർദേ ശം ശബരിമലയിൽ അക്രമം നടത്തിയ കൂടുതൽപേർക്കെതിരെ നടപടിയുണ്ടാകു മെന്ന് സംസ്ഥാന പൊലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിന് കൊല്ലത്ത് തുടക്കമായി സംസ്ഥാന സ്കൂൾ കായികമേളയിൽ എറണാകുളം കുതിപ്പ് തുടങ്ങി

ബി ഐ ഡയറക്ടറുടെ ചുമതലകളിൽ നിന്ന് മാറ്റിയകേന്ദ്ര നടപടിക്കെതിരെ അലോക് കുമാർ വർമ്മ നൽകിയ ഹർജിയിൽ സി ബി ഐ യ്ക്കകത്തെ പ്രശ്നങ്ങൾ സംബന്ധിച്ച അന്വേഷണം കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ കോടതി മേൽനോട്ടത്തിൽ പൂർത്തി യാക്കൻ സുപ്രീംകോടതി ഉത്തരവിട്ടു

മേൽനോട്ടത്തിലായിരിക്കും വിജിലൻസ് കമ്മീഷന്റെ അന്വേഷണം ഡയറക്ടറുടെ ചുമതല നൽകിയിരിക്കുന്ന എം നഗേശ്വര റാവൂ അന്വേഷണം പൂർത്തിയാകുന്നതുവരെ നയപര മായ ഒരു തീരുമാനവും എടുക്കാൻ പാടില്ല

ഇതുവരെയെടുത്ത തീരുമാനങ്ങൾ മുദ്രവെച്ച കവറിൽ കോടതിയിൽ സമർപ്പിക്കണം

കേസ് അന്വേഷിക്കാൻ പ്രത്യേക സംഘം രൂപീകരിക്കണമെന്ന കോമൺ കോസ് എന്ന സംഘടനയുടെ ഹർജിയിൽ ബന്ധപ്പെട്ട കക്ഷികൾക്ക് നോട്ടീസ് അയക്കാനും കോടതി നിർദേശം നൽകി ചീഫ് ജസ്റ്റിസ് രഞജ്ൻ ഗോഗോയ് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത് അലോക് വർമ്മയ്ക്ക് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ എഫ്

സ്പെഷ്യൽ ഡയറക്ടർ സ്ഥാന ത്തുനിന്ന് നീക്കിയ രാകേഷ് അസ്താനയും നടപടിക്കെതിരെ സുപ്രീംകോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട് വ്യാജവാർത്തകളും അശാന്തി പരത്തുന്ന സന്ദേശങ്ങളും തട യാൻ കർശന നടപടി സ്വീകരിക്കണമെന്ന് സാമൂഹിക മാധ്യമ ങ്ങൾക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രാലയം നിർദേശം നൽകി നവമാ ധ്യമ ഉപയോഗം താരതമ്യേന ഇന്ത്യയിൽ കൂടുതലായതിനാൽ പ്രശ്ന പരിഹാരത്തിന് പ്രത്യേക ഉദ്യോഗസ്ഥനെ നിയോഗിക്കണ മെന്നും കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി രാജീബ് ഗൌബ നിർദേശിച്ചു ഗൂഗിൾ ടിറ്റർ വാട്സപ്പ് ഫേസ്ബുക്ക് തുടങ്ങിയവയിലൂടെ ആക്ഷേപകരമായ സന്ദേശങ്ങൾ ജനങ്ങളിലെത്തുന്നത് തടയണ മെന്നും രാജ്യസുരക്ഷയ്ക്ക് ദോഷം വരുത്തുന്ന പ്രവൃത്തികൾ പ്രചരിക്കാതിരിക്കാൻ ജാഗ്രത വേണമെന്നും അദ്ദേഹം ആവശ്യ പ്പെട്ടു ശബരിമലയിൽ അക്രമം നടത്തിയ കൂടുതൽപേർക്കെതിരെ നട പടിയുണ്ടാകുമെന്ന് സംസ്ഥാന പൊലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ അറിയിച്ചു ശബരമലയിലെ അക്രമ സംഭവങ്ങളോട് ബന്ധ പ്പെട്ട് രണ്ടായിരത്തിലേറെപേരെ ഇന്നലെ രാത്രിവരെ അറസ്റ്റ് ചെയ്തതായി അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു

മണ്ഡലകാലത്ത് ശബരിമലയിലെത്തുന്നസ്ത്രീകൾക്ക് കൂടു തൽ സുരക്ഷയൊരുക്കും ശബരിമലയിൽ സ്ത്രീകൾക്ക് സുരക്ഷയൊരുക്കാൻ പ്രത്യേക കമ്മറ്റി രൂപീകരിക്കുമെന്നും ഡി ജി പി പറഞ്ഞു

പിണറായി സേനയെ ശബരിമലയിൽ നിയോഗിച്ചാൽ ഭക്തർ അതിനെ എതിർക്കുമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പിരിച്ചുവിടണമെന്നും പ്രതി പക്ഷനേതാവ് ആവശ്യപ്പെട്ടു മണ്ഡലകാലത്ത് ശബരിമലയിലെത്തുന്ന തീർത്ഥാടകരെ സമ ഗ്രമായി നിരീക്ഷിക്കാൻ പൊലീസ് പദ്ധതി ആവിഷ്ക്കരിച്ചു

എസ്

സി യുമായി സഹകരിച്ച് ഗതാഗത രംഗത്തുമുതൽ തീർത്ഥാടകരെ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് അയക്കുന്ന കാര്യത്തിൽ വരെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും

ശബരിമലയിൽ മണ്ഡല മകരവിളക്കിന്റെ മുന്നോടിയായി നില യ്ക്കലിൽ അടിസ്ഥാന സൌകര്യവികസനത്തിന് പ്രവർത്തനങ്ങൾ തുടങ്ങി പ്രളയം തകർത്ത പമ്പയിലും ബേസ് ക്യാമ്പായ നിലക്ക ലിലും ദ്രുതഗതിയിലാണ് നിർമ്മാണ് പുനരുദ്ധാരണപ്രവർത്ത നങ്ങൾ നടക്കുന്നത് ത്രിവേണി പാലം മുതൽ ഗണപതിക്ഷേത്രം വരെ പാതയുടെയും പമ്പ കെഎസ് ആർ

സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിന് കൊല്ലത്ത് തുടക്കമായി നഗരത്തിലെ വിവിന സ്കൂളുകളിൽ സജ്ജീകരിച്ച എട്ടു വേദികളിലാണ് മത്സരങ്ങൾ ഒപ്പന മോഹിനിയാട്ടം മോണോആക്ട് ലളിതഗാനം പദ്യപാരായണംചിത്രരചന തുടങ്ങിയ മത്സരങ്ങൾ ഇന്ന് നടക്കും മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർ കാഴ്ച വൈകല്യം ഉള്ളവർ കേൾവി ത്തകരാറുള്ളവർ എന്നീ വിഭാഗങ്ങളായി തിരിച്ചാണ് മത്സരങ്ങൾ മുപ്പതോളം ഇനങ്ങളിൽ യു പി ഹൈസ്കൂൾ ഹയർസെക്കൻഡറി വിഭാഗങ്ങളിൽ മൂന്ന് ദിവസങ്ങളിലായി മത്സരങ്ങൾ പൂർത്തിയാകും

ജമ്മുകശ്മീരിൽ ബാരാമുള്ള ജില്ലയിലെ ഏറ്റുമുട്ടലിൽ ഒരു സുരക്ഷാസൈനികൻ വീരമൃത്യു വരിച്ചു രണ്ട് ഭീകരപ്രവർത്ത കരെ സൈനൃം വെടിവെച്ച് കൊന്നു സോപോഡിൽ ഭീകര സാന്നിധ്യം ഉണ്ടെന്ന റിപ്പോർട്ടുകളെ തുടർന്ന് തിരച്ചിൽ ആരംഭിച്ച സുരക്ഷാസേനയ്ക്ക് നേരെ ഭീകരർ വെടിവെക്കുകയായിരുന്നു സോളാർ ലൈംഗിക പീഡനക്കേസിൽ ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകാൻ പരാതിക്കാരി സരിത എസ് നായർ തിരുവനന്ത പുരം പൊലീസ്ആസ്ഥാനത്തെത്തി ഉമ്മൻചാണ്ടിക്കും കെ സി വേണുഗോപാലിനുമെതിരെയാണ് സരിതയുടെ പരാതി

എം മാണിക്കെതിരായ ബാർ കോഴക്കേസിൽ തുടരന്വേഷണം വൈകുന്നതിനെതിരെ ഭരണപരിഷ്കാര കമീഷൻ ചെയർമാൻ വി

തുടരമ്പേഷണത്തിന് ഗവൺമെന്റിൽ നിന്നും പ്രത്യേക അനുമതി വേണമെന്ന തിരുവനന്തപുരം വിജിലൻസ് പ്രത്യേക കോടതിയുടെ ഉത്തരവ് ചോദ്യം ചെയ്താണ് വി എസ് ഹൈക്കോടതിയെ സമീപിച്ചത് പൊതു പ്രവർത്തകർക്ക് എതിരെ തുടർ അന്വേഷണത്തിന് ഗവൺമെന്റ് അനുമതി വേണമെന്ന കേന്ദ്ര നിയമം ഈ കേസിൽ ബാധകമല്ലെന്ന് ഹർജിയിൽ പറയുന്നു

മാണിക്കെതിരായ കേസ് അതിനു മുമ്പുള്ളതാണെന്നും വി

അഴിമതി നിരോധന നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതിനും മുമ്പുണ്ടായ ഉത്തരവിൻറെ അടിസ്ഥാനത്തിലാണ് താൻ കോടതിയെ സമീപിക്കുന്ന തെന്നും അതിനു ശേഷം വന്ന ഭേദഗതിയുടെ അടിസ്ഥാനത്തിൽ തുടരമ്പേഷണത്തിന് മുൻകൂർ അനുമതി ആവശ്യപ്പെടുന്നത് ന്യായമല്ലെന്നും വി എസ് പറഞ്ഞു

ഒ ചെയർമാൻ ഡോ കൈലാസ് വാഡിവോ ശിവൻ അറിയിച്ചു

ആർ ഒ മനുഷ്യനെ ചന്ദ്രനിലേയ്ക്കയക്കു മെന്നും അദ്ദേഹം ഗൊരഖ്പൂരിൽ പറഞ്ഞു

ഒ ചെയർമാൻ വ്യക്തമാക്കി

സ്കൂൾ വിഭാഗത്തിൽ കെഎച്ച്

പെൺകുട്ടികളുടെ ഇതേവിഭാഗത്തിൽ കോഴി ക്കോടിനാണ് സ്വർണം കട്ടിപ്പാറ ഹോളി ഫാമിലി എച്ച്

പി സനിക ജില്ലയ്ക്കുവേണ്ടി ആദ്യ സ്വർണം കരസ്ഥ മാക്കി

എച്ച് എസ് കുമരംപുത്തൂരിലെ മുഹമ്മദ് ജാസിം ആണ് സബ്ജൂനിയർ ബോയ്സ് ലോങ്ജമ്പിൽ ഒന്നാമതെത്തിയത്

ലീഗ് ഫുട് ബോൾ മത്സരങ്ങൾക്കായി ലെ എ കോഴിക്കോട് ഇ

എസ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഒരുക്ക ങ്ങൾ പൂർത്തിയായി നാളെ ഐ ലീഗ് സീസണിൽ കോഴിക്കോട്ടെ ആദ്യ മത്സരത്തിൽ ഗോകുലം കേരള എഫ് സി യും കൊൽക്കത്ത മോഹൻ ബഗാനും ഏറ്റുമുട്ടും

മികച്ച ആക്രമണനിരയാണ് ഇരുടീമിനുമുള്ളത് കഴിഞ്ഞ സീസ ണിൽ ഗോകുലത്തിന് ശക്തിപകർന്ന ഹെന്റി കിസിക്കെ ഇത്ത വണ മോഹൻ ബഗാന്റെ ജഴ്സിയിലാണ് കളിക്കിറങ്ങുന്നത് കരുത്തുറ്റ മോഹൻ ബഗാനെ തകർത്താൽ ലീഗിൽ ഗോകു ലത്തിന് മുന്നോട്ടുള്ള പ്രയാണത്തിന് ഊർജ്ജമാകും

എൽ ഫുട്ബോളിൽ ഇന്ന് അത്ലറ്റിക്കോ ഡി കൊൽക്കത്ത ചെന്നൈയിൻ എഫ്സി യുമായി ഏറ്റുമുട്ടും കൊൽക്കത്തയിൽ രാത്രി ഏഴരയ്ക്കാണ് മത്സരം ഇന്നലെ ഈസ്റ്റ് യുണൈറ്റഡും ജംഷഡ്പൂർ എഫ് സി യും സമനിലയിൽ പിരി യുകയായിരുന്നു കേരള ഗവൺമെന്റിന്റെ പുതിയ വ്യവസായ നയമായ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് വഴി വ്യവസായികൾക്ക് എല്ലാചുവ പ്പുനാടകളിൽ നിന്നും മോചനം ഉറപ്പാക്കുമെന്ന് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു ജില്ലാ വൃവസായ കേന്ദ്രത്തിന്റെ ആഭി മുഖ്യത്തിൽ പൊന്നാനി താലൂക്ക്തല വ്യവസായ നിക്ഷേപക സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പൊന്നാനി യുടെ ടൂറിസം സാധ്യതകൾ ഉപയോഗപ്പെടുത്തണമെന്നും സ്പീക്കർ നിർദേശിച്ചു ദേശീയ ബാലശാസ്ത്ര കോൺഗ്രസിന്റെ ജില്ലാതല മത്സരങ്ങൾ നാളെ രാവിലെ മുതൽ കുന്ദമംഗലം സി

ഡി

മൂന്ന് വിദ്യാഭ്യാസ ജില്ലകളിൽ നിന്നായി യു പി എച്ച് എ സ് എച്ച്

കോഴിക്കോട്ട് പ്രവർത്തിക്കുന്ന ഡാം സേഫ്റ്റി ഡിവിഷണൽ ഓഫീസ് വയനാട്ടിലേക്ക് മാറ്റും

എം മണിയുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലാണ് പടിഞ്ഞാറെത്തറ ബാണാസുരസാഗർ ജലവൈദ്യുത പദ്ധതി ഓഫീസിലേക്ക് ഡിവി ഷണൽ കാര്യാലയം മാറ്റാൻ തീരുമാനമായത് വയനാട്ടിൽ വലുതും ചെറുതുമായി ആറിനടുത്ത് ഡാമുകളുള്ള സാഹചര്യത്തിലാണ് ഡാമുകളുടെ സുരക്ഷ കണക്കിലെടുത്ത് ഓഫീസ് പ്രവർത്തനം പടിഞ്ഞാറെത്തറയിലേക്ക് മാറ്റുന്നതെന്ന് മന്ത്രി പറഞ്ഞു സംസ്ഥാനത്ത് സ്കൂളുകൾക്ക് നാളെ പ്രവൃത്തിദിനമായിരിക്കു മെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അറിയിച്ചു പ്രാദേശിക കാര ണങ്ങളാൽ ഏതെങ്കിലും ജില്ലകളിലെ സ്കൂളുകൾക്ക് വിദ്യാഭ്യാസ ഉപഡയറക്ടർമാർ അവധി നൽകിയിട്ടുണ്ടെങ്കിൽ ആ ജില്ലകൾക്ക് ഇത് ബാധകമാവില്ലെന്ന് ഡയറക്ടർ തിരുവനന്തപുരത്ത് പറഞ്ഞു കോഴിക്കോട് ജില്ലയിൽ മാനസിക വൈകല്യം നേരിടുന്ന വർക്ക് ശ്രദ്ധാഭവൻ എന്ന പേരിൽ പുനരധിവാസകേന്ദ്രം നിർമ്മി ക്കും ഇക്കാര്യത്തിൽ വിശദമായ പ്രോജക്ട് റിപ്പോർട്ട് ഗവൺമെന്റിന് സമർപ്പിക്കാൻ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി ജില്ലാപഞ്ചായത്തിന്റെ ആറ് ഏക്കർ സ്ഥലത്തായിരിക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വെവ്വേറെ സൌകര്യമൊരുക്കി കെട്ടിട സമുച്ചയം നിർമ്മിക്കുക കൂടുതൽ മാർക്ക് വാങ്ങുന്നതിന് നിർബന്ധിച്ച് കുട്ടികളെ മാനസിക സമ്മർദ്ദത്തിലാക്കരുതെന്ന് എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗ് പറഞ്ഞു സ്കൂൾ വിദ്യാർത്ഥികൾക്കായി എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ കൊല്ലത്ത് സംഘടിപ്പിച്ച വിമുക്തി ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കുട്ടികളുടെ പെരുമാറ്റത്തിലുണ്ടാകുന്ന മാറ്റം തിരിച്ചറി യാൻ അധ്യാപകരും രക്ഷിതാക്കളും പ്രത്യേകശ്രദ്ധ പുലർത്തണമെന്നും അദ്ദേഹം പറഞ്ഞു നെടുമ്പാശ്ശേരി കള്ളനോട്ട് കേസിൽ ഒന്നാംപ്രതി കുറ്റക്കാര നെന്ന് എറണാകുളം പ്രത്യേക എൻ

മലപ്പുറം കാളികാവ് നീലഞ്ചേരി സ്വദേശി ആബിദ് ഹസനെയാണ് കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത്

നീക്കം ചെയ്ത വിവരം നഗരസഭയെ അറിയിക്കണം ജില്ലാ ഭരണകൂടവും കോർപ്പറേഷനും തിങ്കളാഴ്ച നടത്തുന്ന പരിശോധനയിൽ നിർദേശലംഘനം ശ്രദ്ധ യിൽപ്പെട്ടാൽ ബന്ധപ്പെട്ട വ്യക്തികൾക്കും സംഘടനകൾക്കുമെ തിരെ പിഴ ചുമത്തും